യെസ് ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട് മുംബൈയിലെ ഏഴ് സ്ഥലങ്ങളിൽ സി

ഇറ്റലിയിൽ നിന്നെത്തിയ മൂന്ന് വയസ്സുള്ള കുട്ടിക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്

ബി

കുറ്റാരോപിതനായ റാണാ കപൂറിന്റെ വീട്ടിലും ഓഫീസ്ുകളിലും തിരച്ചിൽ നടന്നു വരുന്നതായി സി ബി ഐ അധികൃത്ര് ആകാശവാണിയോട് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ആ്മിന്റെ നജുമ

എച്ച്

എൽ പ്രമോട്ടർ കപിൽ വധ്വാനുമായി റാണാ കപൂർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതായി സി ബി ഐ

യെസ് ബാങ്ക് ഡി

എൽ ന് നൽകുന്ന സാമ്പത്തിക സഹായത്തിനു പകരമായി റാണാ കപൂറിന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള കമ്പനികൾക്ക് സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ഗൂഢാലോചന അതിനിടെ റാണാ കപൂറിനെതിരെ സി ബി ഐ

ബുധനാഴ്ചവരെയാണ് കസ്റ്റഡി കാലാവധി

എച്ച് എഫ്

ബി ഐ

ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന അഴിമതി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്

കേരളം ഡൽഹി ജമ്മു ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് നാല് പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

രണ്ടാമത്തെ ആളുടെ പരിശോധനാ ഫലം വന്നിട്ടില്ല സൌദി അറേബ്യയിൽ നിന്നെത്തിയ മറ്റൊരു സ്ത്രീയെ ഡ്രോസ്യിലെ ജി എം സി

വൈറസ് ബാധയുടെ വ്യാപനം തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഡിവിഷണൽ കമ്മീഷണർ സ്വാഗത് ബിശ്വാസ് വ്യക്തമാക്കി

മാതാപിതാക്കളെ പരിശോധിച്ചതായും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ അറിയിച്ചു ഈ മാസം ഏഴാം തീയതി ദുബായ് കൊച്ചി വിമാനത്തിലാണ് ഇവർ കൊച്ചിയിലെത്തിയത് നേരത്തെ പത്തനംതിട്ട ജില്ലയിൽ ഇറ്റലിയിൽ നിന്നെത്തിയ മൂന്ന് പേർ ഉൾപ്പെടെ അഞ്ചുപേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിരുന്നു

പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ മാർഗ്ഗ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു വൈറസ്ബാധ സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവയ്ക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പൊലീസ് മുന്നറിയിപ്പ് നൽകി

ചെന്നൈയിൽ പ്രവർത്തിച്ചു വരുന്ന ലാബിനു പുറമേയാണിത് ആവശ്യമെങ്കിൽ ഇത്തരം നാല് ലാബുകൾ കൂടി തുടങ്ങുന്നതിനുള്ള കേന്ദ്രാനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് തമിഴ്നാട് ആരോഗ്യമന്ത്രി ഡോ

വിജയഭാസ്കർ അറിയിച്ചു

കുത്തിയോട്ടക്കാരുടെ ചൂര്ലക്കുത്ത് ചടങ്ങുകൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും

മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് നാളെ രാവിലെ തിരിച്ചെത്തും രാത്രി കാപ്പഴിച്ച് കുരുതി തർപ്പണം നടക്കുന്നതോടെ ഉത്സവം സമാപിക്കും

വൈറസ് ബാധയ്ക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യങ്ങൾ

ഇതോടെ ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യമായി ഇറ്റലി മാറി

പുതിയ വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ ഇന്ന് കുറവുണ്ടായിട്ടുണ്ട്

മുപ്പതോളം സംസ്ഥാനങ്ങൾ വൈറസിന്റെ പിടിയിലാണ്

കാലിഫോർണിയ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ ആറുകോടി ജനങ്ങൾക്കിടയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്

വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കണമെന്ന് മാതാപിതാക്കൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു

ജോർദാനിൽ നടക്കുന്ന ഏഷ്യൻ കാളിഫയേഴ്സ് കാർട്ടറിൽ ഫിലിപ്പിൻസിന്റെ കാർലോ പാലമിനെ പരാജയപ്പെടുത്തിയാണ് പൻഘൽ തന്റെ ആദ്യ ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്

തമ്പിദുരൈയെ അണ്ണാ ഡി

ഒരു സീറ്റ് സഖ്യകക്ഷിയായ തമിഴ് മാനില കോൺഗ്രസ് നേതാവ് ജി

വാസന് നൽകി

സൌരാഷ്ട്രയ്ക്കായി ബറോട്ടും വി